ചെയ്യുന്നവരെയും തീവ്രവാദികളെയും തകർക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്

പ്രവർത്തനങ്ങൾക്ക് പ്രധാനീമുന്തി തുടക്കമിട്ടു

പാളം തെറ്റി ആറ് പേർ മരിച്ചു

മുന്നിൽ നടത്തി വന്ന പട്ടിണി സമരം പിൻവലിച്ചു

ജമ്മുകാശ്മീരിലെ ഭീകരവാദത്തിന്റെ നട്ടെല്ല് കേന്ദ്ര ഗവൺമെന്റ് തകർക്കുമെന്നും എല്ലാ തരത്തിലും ഭീകരവാദത്തിനെ തിരെ പോരാടുമെന്നും ശ്രീ മോദി ശ്രീനഗറിൽ പറഞ്ഞു ഭീകരവാദത്തെ പിടിച്ചുകെട്ടാൻ ഇന്ത്യ ലോകത്തിന് കാണിച്ച് കൊടുത്ത നയമാണ് മിന്നലാക്രമണമെന്നും എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യം ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജമ്മു ലേ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആയിരത്തോളം കോടിയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത് വിജയ്പൂർ സാംബ എന്നിവിടങ്ങളിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കിഷ്തവാറിലെ രണ്ട് ജലവൈദ്യുത പദ്ധതികൾ എന്നിവക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു രാജ്യത്ത് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിലുള്ള കാലതാമസം ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് കാശ്മീർ ജനതയെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഈ പ്രവണത പൂർണമായി ഒഴിവാക്കി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും പ്രധാന മന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി അരുൺ കെ

വോയിസ് പുതിയ പദ്ധതികൾ ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതാണെന്നും ഗുണമേന്മയുള്ള ആരോഗൃ സംരക്ഷണം ഉറപ്പ് നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത മുൻ ഗവൺമെന്റിനെ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കർത്താപൂർ ഇടനാഴിയിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ഗുരു നാനാക്ക് ദേവ് ഭൂമി ഇന്ത്യയുടെ ഭാഗമായി തുടർന്നേനെയെന്നും അദ്ദേഹം പറഞ്ഞു ലേ യിൽ ഒമ്പത് മെഗാവാട്ട് ശേഷിയുള്ള ദാ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിനും ശ്രീ

അഖ്നൂരിൽ ചെനാബ് നദിക്ക് കുറുകെ ഒന്നര കിലോമീറ്ററോളം നീളമുള്ള റെയിൽവേ പാലത്തിന്റെ നിർമ്മാണ പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ജമ്മുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ ക്യാമ്പസിനും കത്വയിൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റ്യിട്ടിട്ടിനും ശ്രീ

ക്ട ദാഹിലെ വൈദ്യുതോൽപ്പുദ്ദനു നിലയം ശ്രീനഗർ ദ്രാസ് കാർഗിൽ വൈദ്യുത വിത്രൺ ശൃംഖല എന്നിവയും അദ്ദേഹം തുടക്കം കുറിച്ചു പദ്ധത്തികളിാണ്

മൂന്നു പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം

അപകടത്തിൽ പ്രധാന മന്ത്രി നരേന്ദ്രമോദിയും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അനുശോചനം രേഖപ്പെടുത്തി സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്

കാർഷിക മേഖലയിൽ മാറ്റം വന്നാലെ ഭക്ഷ്യ സുരക്ഷയും ഗ്രാമീണ തൊഴിലും വർധിപ്പിക്കാൻ കഴിയൂ എന്ന് ശ്രീ

വിഖ്യാൻ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിൽ സംസാരിക്കുകയായ്ട്രിരുമ്നു അദ്ദേഹം

ബിഹാറിലും പ്രതിപക്ഷം അധികാരത്തിലെത്തുമെന്നും പാറ്റ്നയിൽ നടന്ന കോൺഗ്രസ് റാലിയിൽ അദ്ദേഹം പറഞ്ഞു റഫാൽയുദ്ധ വിമാന ഇടപാടിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശ്രീ രാഹുൽഗാന്ധി കേന്ദ്ര ഗവൺമെന്റിനേയും പ്രധാനമന്ത്രിയേയും രൂക്ഷമായി വിമർശിച്ചു

ഇതുവരെ യുള്ള കണക്ക് അനുസരിച്ച് തീർത്ഥാടകരുടെ എണ്ണം ഒരുകോടി കവിഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു പുണ്യസ്നാനത്തോട് അനുബന്ധിച്ച് കർശന സുരക്ഷ യാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്

ബി ഐ ഡയറക്ടറായി ഋഷി കുമാർ ശുക്സയെ നിയമിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് മല്ലികാർ ജ്ജുൻ ഖാർഗെയ്ക്കെതിരെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ വിമർശനം നിയമനവുമായി ബന്ധപ്പെട്ട് ശ്രീ ഖാർഗെ ്തുടർച്ച യായി അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കുകയാണെന്ന് ശ്രീ

നേരത്തെ ലോക് വർമ്മയെ നിയമിച്ച പ്പോഴും പിന്നീട് അലോക് വർമ്മയെ മാറ്റിയപ്പോഴും ഖാർഗെ വിയോജി ച്ചിരുന്നു ഇപ്പോൾ ഋഷികുമാർ ശുക്സയെ നിയമിച്ചപ്പോഴും അതേ രീതി തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി

ജെ

ഇത് സംബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്നു പ്രിച്ചാരണപരിപാടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി കൂടുതൽ വിവരങ്ങളുമായി അരുൺ കെ

ജെ

അധ്യക്ഷൻ അമിത്ഷായും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും സംയുക്തമായാണ് ഭാരത് കെ മൻ കി ബാത്ത് മോദി കെ സാത് എന്ന് പേരിട്ടിരിക്കുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് പരിപാടിയോട് എല്ലാ പൌരന്മാരും സഹകരിക്കണമെന്ന് പ്രധാന മന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു പൌരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും രാജ്യത്തെ അഭിവൃദ്ധിയിലേയ്ക്ക് നയിക്കു ന്നതിനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞതായും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ജനങ്ങളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് ലോകത്ത് ആദ്യമായാണ് ഒരു പാർട്ടി പ്രകടന പത്രിക തയ്യാറാക്കുന്നതെന്ന് ശ്രീ

ജെ

യൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നതിലൂപരി നവ ഭാരത സൃഷ്ടിക്കുള്ള ശ്രമമാണ് പാർട്ടി നടത്തുന്നതെന്ന് ശ്രീ അമിത് ഷായും പറഞ്ഞു കാർഷിക മേഖല യുവാക്കളുടെയും വനിതകളുടെയും പ്രശ്നങ്ങൾ വികസനം ദേശീയ സുരക്ഷ എന്നീ വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നൽകാവുന്ന താണ്

ജെ

ഇമെയിൽ സമൂഹമാധ്യമങ്ങൾ പ്രത്യേക വെബ്സൈറ്റ് എന്നിവയിലൂടെ നിർദ്ദേശങ്ങൾ നൽകാം

ആഭ്യന്തര മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതിക്കാണ് തെരഞ്ഞെടുപ്പ് പത്രികയുടെ തയ്യാറാക്കൽ ചുമതല

മൂന്നു വിഗ്രഹങ്ങളിലെ വിശ്രീഷ്ടമായ കല്പുകൾ പതിച്ച സ്വർണ്ണകീരിടങ്ങളാണ് കാണാതൃര്യത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലേ താണ് കാണാതായ കിരീടങ്ങൾ

ചെങ്കടലിൽ കപ്പലിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച യെമന്റെ ഹുദീദ തുറമുഖത്തിൽ നിന്നുള്ള പിന്മാറ്റമാണ് കൂടി ക്കാഴ്ചയുടെ മുഖ്യ അജണ്ട കൂടിക്കാഴ്ചയിൽ ഹൂതി നേതാക്കളും സൌദി അറേബ്യൻ പിന്തുണയുള്ള യമൻ ഗവൺമെന്റ് പ്രതി നിധികളും പങ്കെടുത്തു

കൊളം ബോയിലെ ഗാലൂഹ് ഫെയ്സ് മൈതാനത്താണ് ആഘോഷ പരിപാടികൾ നടക്കുക പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയും മാലദ്ധീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സൊലിഹും ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും

വ്യാജ സർവ കലാശാലയിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ അറസ്റ്റിലായത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ ഇന്ത്യാ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്നും ശ്രീ

നേരത്തെ മെഡിക്കൽ സംഘം ശൂപ്യൂർശ് ചെയ്തവരുടെ കാര്യത്തിൽ വീണ്ടും പരിശോധനയുണ്ടാക്കില്ല

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് ഇന്ന് കാസർകോട് തുടക്കമായി പ്രവർത്തക സമിതി അംഗം എ

മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കർണ്ണാടക മന്ത്രി ഡി

ശിവകുമാർ തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു

ചിന്മയാ മിഷൻ കേരളാ ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടന സമ്മേളന ത്തിൽ അദ്ധ്യക്ഷത വഹിച്ചു

വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ സുരക്ഷാവാരം ആചരിക്കുന്നത്